തീവ്രവാദികൾ ഗുവാഹത്തിയിൽ കീഴടങ്ങി

ഝാർഖണ്ഡിൽ പശ്ചിമക്സിട്ട്മും ജില്ലയിൽ ഏഴ്

പകർച്ചവ്യാധി പ്രിതിരോധത്തിനും

മ്യാൻമറിൽ റോഹിംഗൃകൾക്കെതിരായ വംശഹത്യ തടയാൻ അടിയന്തിരനടപടി സ്വീകരിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവ്

വിഷയത്തിൽ കേന്ദ്രത്തിന് വ്യക്തവും ദൃഢവുമായ നിലപാടുണ്ടെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു വിശദാംശങ്ങളുമായി കൃഷ്ണ ഷിംലാ കരാറിന്റെയും ലാഹോർ പ്രഖ്യാപനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കശ്മീർ വിഷയം ചർച്ചചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃക്താവ് രവീഷ് കുമാർ പറഞ്ഞു കശ്മീർ വിഷയം സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന്മേലുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തിന് വൃക്ത്മായ് നിലപാടുകളുണ്ടെന്നും ചർച്ചയ്ക്ക് അനുയോജ്യമായ സാഹൃചൂര്യും ഒരുക്കേണ്ടത് പാകിസ്ഥാന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു

ഇസ്ലാമാബാദിന്റെ ഇരട്ടനിലപാട് ആഗോളസമൂഹം മനസ്സിലാക്കിയെന്നും ശ്രീ

ഇന്ത്യാ പാക് ബന്ധം സംബന്ധിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ദാവോസിൽ നടത്തിയ പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നും അദ്ദേഹം വൃക്തമാക്കി ഒരുവശത്ത് ഭീകരവാദത്തെ എതിർക്കുകയും മറുവശത്ത് ഭീകരസംഘടനകളെ അനുകൂലിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ നിലപാട് ആഗോളസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്

ഇതിന്മേലാണ് ഇന്ത്യ ശക്തമായ എതിർപ്പ് വ്യക്തമാക്കിയത്

ആയുധങ്ങളുമായി തീവ്രവാദികൾ കീഴടങ്ങിയതോടെ സംസ്ഥാനത്തെ സമാധിക്ക് പ്രവർത്തനങ്ങൾക്ക് ശക്തികൂടുമെന്ന് ശ്രീ

ജെ

ദേശീയ അധ്യക്ഷൻ ജെ

പാകിസ്ഥാനിലും മറ്റ് അയൽരാജ്യങ്ങളിലുമായി മതപീഡനം നേരിട്ട ന്യൂനപക്ഷങ്ങൾക്ക് ഈ നിയമത്തിലൂടെ പൌരത്വം ലഭിക്കുമെന്നത് അവർ തിരിച്ചറിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പൌരത്വഭേദഗതി നിയമത്തെ അനുകൂലിച്ച് ആഗ്രയിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വിഷയത്തിൽ ബി ജെ

ഈ നിയമം സംബന്ധിച്ച് ദളിത് നേതാക്കൾക്കും കോൺഗ്രസ് പാർട്ടിക്കും യാതൊന്നും അറിയില്ലെന്നും അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ശ്രീ

ജയ്പൂരിന്റെ അഭിമാനമാണ് ഈ സാഹിത്യോത്സവമെണ്ണി മുഖ്യമന്ത്രി പറഞ്ഞു

ഊർജ്ജമന്ത്രി ബി

നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കാഠ്മണ്ഡുവിൽ നിന്ന് വ്യോമമാർഗ്ഗമാണ് മൃതദേഹങ്ങൾ എത്തിച്ചത്

എട്ട് പേർ താമസിച്ച മുറിക്കുള്ളിലെ ഗ്യാസ് ഹീറ്ററിൽ നിന്നുമുള്ള വിഷവാതകം ശ്വസിച്ചാണ് മരണം സംഭവിച്ചത് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ മരണത്തിൽ നേപ്പാൾ വിദേശകാര്യ മന്ത്രി പ്രദീപ് കുമാർ ഗ്യാവലി അഗാധ ദുഃഖം രേഖപ്പെടുത്തി

ഞായറാഴ്ച ഗ്രാമസഭയ്ക്കിടെ പതൽഗാഡി പ്രസ്ഥാനത്തിനെതിരെ പ്രതിഷേധിച്ചവരാണ് കൊല്ലപ്പെട്ട ഏഴ് പേരും ജില്ലയിലെ നക്സൽ ബാധിത ഉൾവനത്തിൽ നിന്നാണ് പോലീസ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് പ്രിഞ്ചായത്ത് യോഗത്തിനിടെ പതൽഗാഡി പ്രസ്ഥാനത്തെ പിൻതുണ്ട്യ്ക്ക്കുന്നവരും എതിക്കുന്നവരും തമ്മിൽ നടന്ന തർക്കത്തുടർന്നാണ് കൊലപാതകം നടന്നത്

ഇന്തൃയിലെ ഈ വർഷത്തെ ആദ്യഉന്നതതല സന്ദർശനമാണ് ബ്രസിലീയൻ പ്രസിഡന്റിന്റേതെന്ന് വിദേശകാരൃ മന്ത്രാലയ സെക്രട്ടറി വിജയ് താക്കൂർ സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മറ്റെന്നാൾ രാഷ്ട്രപതി ഭവനിൽ ശ്രീ

ഇരുരാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവെയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവ്വഹിച്ചു പകർച്ചവ്യാധികളുടെ സാധ്യത മുൻനിർത്തി ആരോഗ്യ ജാഗ്രത പദ്ധതി ഈ വർഷം കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് തദ്ദേശ ഭരണവകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെയും വിവിധ ഏജൻസികളുടെയും പ്പ്ങ്കാളിത്തത്തോടെയാകും പദ്ധതി നടപ്പാക്കുക

പദ്ധതിക്ക് റെയിൽവേ മന്ത്രാലയം തത്വത്തിൽ അംഗീകാരം നൽകിയ സാഹചര്യത്തിലാണ് തീരുമാനം

എന്നാൽ നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായി പുതിയ പാത പോകുന്ന ഭാഗത്ത് റെയിൽവേക്കുള്ള അധിക ഭൂമി ഈ പദ്ധതിക്ക് ഉപയോഗിക്കാമെന്ന് റെയിൽവേ മന്ത്രാലയം സമ്മതിച്ചിട്ടു

ഉഭയകക്ഷി സാമ്പ ത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര വേദിക ളിൽ ഒരുമിച്ചുള്ള സഹകരണത്തിനും ഇരുരാജ്യങ്ങളും തമ്മിൽ ധാര ണയായി മൂന്നു ദിവസത്തെ നൈഗർ ടൂണേഷ്യൻ സന്ദർശന ത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച ഇന്നലെയാണ് ശ്രീ

വിദേശകാര്യമന്ത്രി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ആഫ്രിക്കൻ പര്യടനമാണിത്

ടുണേഷ്യൻ പ്രസിഡന്റുമായും മറ്റ് രൂണ്ടുനേതാക്കളുമായും അദ്ദേഹം ചർച്ച നടത്തി

പ്രദേശത്തെ സുരക്ഷാസ്ഥിതിഗതികൾ സംബന്ധിച്ച് ഉന്നത സേനാ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തി

കാലാവസ്ഥയും ശത്രുക്കളും ഭീകരരും സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളെ ശക്തമായും ആത്മാർത്ഥമായും നേരിടണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി

ആറുമാസം കൂടുമ്പോൾ കേസിന്റെ പ്പുരോഗതി റിപ്പോർട്ട് കൈമാറണമെന്നും കോടതി വൃക്തമാക്കി ക്രാജ്യാന്തര കോടതി പ്രസിഡന്റായ ജഡ്ജി അബ്ദുൾഖാവി അഹമ്മദ് യൂസഫ് ആണ് വിധി പുറപ്പെടുവിച്ചത്

കോടതി പാലിക്കപ്പെടേണ്ടതാണെന്നും റോഹിങ്ക്യകളെ സംരക്ഷിക്കേണ്ടത് മ്യാൻമാറിന്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി വ്യക്തമാക്കി റോഹിങ്കൃകൾക്ക് എതിരായ കുറ്റകൃതൃങ്ങളിൽ ചില പട്ടാളക്കാർ ഉൾപ്പെട്ടതായും എന്നാൽ സൈന്യത്തിന് ഒന്നടങ്കം ഇതിൽ പങ്കില്ലെന്നും മ്യാൻമാർ കമ്മീഷൻ കണ്ടെത്തിയതിനു പിന്നാലെയാണ് വിധി പ്രഖ്യാപനം

ന്യൂസ് ഡസ്ക് ആകാശവാണി